മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥർണക്കടത്ത് സംഘം ഹൈജാക്ക് ചെയ്തതായും സ്വർണ്ണ്ണ്കൂടിത്തിന്റെ ആസ്ഥാനം ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസ്ട് മാറിയതായും അദ്ദേഹം ആരോപിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത് വിമാനത്താവളം സ്വകാര്യകമ്പനിക്ക് കൈമാറാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം ജനങ്ങളുടെ പൊതുവികാരത്തിന് എതിരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നിരന്തരമായ അഭ്യർത്ഥന കേന്ദ്രം തള്ളി കളഞ്ഞതായും അദ്ദേഹം വൃക്തമാക്കി വിമാനത്താവള വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചതായും ഒരേ സമയ്ക്ക് അദ്ദാനിയെ എതിർക്കുകയും രഹസ്യമായി സഹായിക്കുകയും ച്ചെയ്യു്ന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും പ്രതിപക്ഷ്ഗ്ലേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു